ഗ്രാമീണ കാർഷിക വിപണികൾ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെ ടുത്തുന്നതിനും രണ്ടായിരം കോടി രൂപയുടെ നിധി രൂപീകരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിൽനിന്ന് ധനസഹായം അനു വദിക്കുന്നതിന് വാർഷിക വരുമാനപരിധി രണ്ട് ലക്ഷം രൂപയാക്കി സംസ്ഥാനത്ത് ഏഴ് പുതിയ സബ് ആർ ടി ഒ ഓഫീസുകൾകൂടി തുടങ്ങാൻ മന്ത്രിസഭാ തീരുമാനം മഹാ പ്രളയത്തിൽ രക്ഷകരായ കേരളത്തിലെ മത്സൃത്തൊഴിലാ ളികളെ നൊബേൽ സമ്മാനത്തിന് ഡോ ശശിതരൂർ എം

ശുപാർശ ചെയ്തു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

മത്സരം സമനിലയിൽ അനധികൃത നിക്ഷേപ പദ്ധതികൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ നിയന്ത്രണ അതോറിറ്റിയുടെ പരിധിയിൽവരാത്ത എല്ലാ നിക്ഷേപ പദ്ധ തികളും നിരോധിക്കുന്ന ബില്ലിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രി സഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞവർഷംകൊണ്ടുവന്ന ബില്ല് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചാണ് ധനമന്ത്രാലയത്തിന്റെ സ്ഥിരം സമിതി ശുപാർശ പ്രകരം ഭേദഗതി വരുത്തുന്നതെന്ന് നിയമന്ത്രി രവിശ ങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

അത്തരം സ്ഥാപനങ്ങളുടെ ബ്രാന്റ് അമ്പാസിഡർമാരായി പ്രശസ്തർ പ്രവർത്തിക്കുന്നതും കുറ്റകരമാണ് ഗ്രാമീണ കാർഷിക വിപണികൾ വിക സിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും രണ്ടായിരം കോടി രൂപയുടെ നിധി രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു

പശുക്കളുടെ സംര ക്ഷണത്തിനും വികസനത്തിനും ചെറുകിട കർഷകരുടെ വരുമാനം വർധി പ്പിക്കാനും നയം തയ്യാറാക്കുന്നതിന് കമ്മിഷൻ രൂപീകരിക്കാനും മന്ത്രി സഭ തീരുമാനിച്ചു

ബി ഐ സൈറ്റുകളിൽ ധനനയത്തിന്റെ പൂർണ രൂപം ലഭ്യമാകും മുഖ്യമന്ത്രിയുടെ ദുരിതാശാസ നിധിയിൽനിന്ന് ധനസഹായം അനു വദിക്കുന്നതിന് വാർഷിക വരുമാനപരിധി രണ്ട് ലക്ഷം രൂപയായി വർധി പ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു

ടി ഒ ഓഫീ സുകൾ തുടങ്ങാനും മന്ത്രിസഭ തീരുമാനിച്ചു

ടി ഒ

എറണാകുളം ജില്ലയിലെ തുറവൂരിലും വയനാട് ജില്ലയിലെ വെള്ളമുണ്ടയിലും പുതിയ ഗവൺമെന്റ് ഐ ടി ഐ കൾ ആരംഭിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു കൊല്ലം ജില്ല യിലെ കണ്ണനെല്ലൂർ കായംകുളം മട്ടാഞ്ചേരി പട്ടാമ്പി വളാഞ്ചേരി പേരാ മ്പ്ര തലശ്ശേരി എന്നിവിടങ്ങളിൽ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്ര ങ്ങൾ ആരംഭിക്കാനും മന്ത്രിസഭ അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി ഇടുക്കി ജില്ലാ കളക്ടർ ജീവൻ ബാബുവിനെ നിയമി ക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു

ചരിത്രവും ചരിത്രത്തിന്റെ ഭാഗമായവരെയും പൊതുസമൂഹത്തിന് മനസിലാക്കിക്കൊടുക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമസഭാ സുവർണ ജൂബിലി മ്യൂസിയം പ്രവർത്തിക്കുന്ന പൈതൃക മന്ദിരത്തിന്റെ സംരക്ഷണ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഒന്നാംഘട്ടം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവ ഹിക്കുകയായിരുന്നു അദ്ദേഹം മഹാപ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ച കേരള ത്തിലെ മത്സ്യത്തൊഴിലാളികളെ ഡോ ശശിതരൂർ എം

പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ഈ ആവശ്യം ഉന്നയിച്ച് നൊബേൽ പുരസ്കാരസമിതി അധ്യക്ഷന് അദ്ദേഹം കത്തയച്ചു മഹാദുരന്തത്തിനിടയിൽ സ്വന്തം ജീവനും ജീവ നോപാധിയായ ബോട്ടുകളും നഷ്ടപ്പെടുമെന്നത് അവഗണിച്ച് രക്ഷാപ്ര വർത്തനം നടത്തിയ മത്സൃത്തൊഴിലാളികളാണ് കാരൃങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയതെന്നും കത്തിൽ പറയുന്നു ഒരു പ്രശംസയും ആഗ്ര ഹിക്കാതെ ഈ സേവനങ്ങൾചെയ്ത മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തി കമായും സാമൂഹികമായും ദയനീയ അവസ്ഥയിൽ കഴിയുന്നവരാണെന്ന് നോർവീജിയൻ നൊബേൽസമിതി ചെയർപേഴ്സണന് എഴുതിയ കത്തിൽ ഡോ ശശിതരൂർ അറിയിച്ചു

ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കനത്ത വില നൽകേണ്ടിവരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു യുവതീ പ്രവേശത്തിൽ സുപ്രീംകോടതിയിൽ ദേവസ്വംബോർഡ് നടത്തിയ മലക്കം മറിച്ചിൽ എല്ലാവരെയും ഞെട്ടിച്ചുവെന്നും വിശ്വാസി കൾക്കൊപ്പം നിൽക്കേണ്ടവർ സി

എമ്മിന്റെ ചട്ടുകമായി മാറി യെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എൽ

എഫ് ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെത്തുടർന്ന് അല്ലെന്ന് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുവനന്തപുരത്ത് അറിയിച്ചു പുനപരിശോധനാ ഹർജി നൽകേണ്ടതി ല്ലെന്ന് നേരത്തെയെടുത്ത തീരുമാനമാണെന്നും സാവകാശ ഹർജിയാണ് ബോർഡ് നൽകിയതെന്നും അദ്ദേഹം പ്പറഞ്ഞു സുപ്രീംകോടതിവിധി എന്തായാലും ദേവസംബോർഡ് അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്ത മാക്കി ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും സുപ്രീംകോടതി വിധിക്കെതിരെ സാവകാശ ഹർജി നൽകുമെന്നും നില പാടെടുത്ത ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ ഇപ്പോൾ വഞ്ച നാപരമായ നിലപാടാണ് എടുത്തതെന്ന് ആർ

ക്ഷേത്രവും ക്ഷേത്രാചരങ്ങളും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രാചാര ങ്ങൾ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റ പ്പെടുത്തി ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ബെംഗളുരുവിൽ കരുത്തരായ ബെംഗളുരു എഫ്

യെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ തളച്ചു ഇരു ടീമുകളും രണ്ട് ഗോൾവീതം നേടി പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ബെംഗളുരുവിനെതിരെ ഇതാദൃമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടു ന്നത്

പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ഗോകുലം ഇന്ത്യ എ ഇംഗ്ലണ്ട് ലയൺസ് ചതുർദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് വയ നാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ തുടങ്ങും മത്സരം രാവിലെ ഒമ്പതിന് ആരംഭിക്കും

മല്ലിക് അഖിലേന്ത്യാ പോലീസ് ഫുട്ബോളിൽ ബി

എഫിനെ നേരിടും വൈകിട്ട് അഞ്ചിനാണ് മത്സരം ഇടുക്കി വട്ടവടയിൽ ഇന്ന് നടത്താനിരിക്കുന്ന ജല്ലിക്കെട്ടും കന്നുകാലികളെ ഉപയോഗിച്ചുള്ള വിവിധ മത്സരങ്ങളും നിരോധിച്ചു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെ തിരെ കെ

സി സി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജന മഹായാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും രാവിലെ ജില്ലാ അതിർത്തിയായ അടിവാരത്ത് ഡി സി സി

തുടർന്ന് കൊടുവള്ളി മേപ്പയ്യൂർ ആയഞ്ചേരി നാദാപുരം എന്നി വിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് വടകരയിൽ ഇന്നത്തെ പര്യടനം സമാപിക്കും

ഉച്ചക്ക് ഭഗവതിയുടെ തിരുമുടി നിവരും കേരള പക്ഷിഭൂപടം തയാറാക്കുന്നതിന്റെ ഭാഗമായി പറമ്പിക്കുളം കടുവാ സംരക്ഷണകേന്ദ്രത്തിലെ പക്ഷി സർവേക്ക് ഇന്ന് തുടക്കമാകും വനം വകുപ്പ് ഫോറസ്ട്രി കോളേജ് കാർഷിക സർവകലാശാല ബേർഡ് കൌണ്ട് ഇൻഡ്യ എന്നിവ സംയുക്തമായി നടത്തുന്ന സർവേ നാലു ദിവസം നീണ്ടു നിൽക്കും

അയി രൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ദർശന സമ്മേളനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ത്തര മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്ന് വിവിധ പദ്ധതികൾ ആസൂ ത്രണം ചെയ്യും ഇതിന് മുന്നോടിയായി ഇന്ന് രാവിലെ കണ്ണൂർ ചേംബർ ഹാളിൽ ടൂറിസം ഫ്രട്ടേണിറ്റി മീറ്റ് നടക്കും കിയാൽ എം

തുളസീദാസ് സംസ്ഥാന ടൂറിസം സെക്രട്ടറി റാണി ജോർജ് എന്നിവർ പങ്കെടുക്കും ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ സന്ദേശയാത്ര നടക്കും ജില്ലയിലെ വിവിധ ബ്ലോക്കു കളിലാണ് പരിപാടി പാലക്കാട് റെയിൽവെസ്റ്റേഷനിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച രണ്ടു കോടി രൂപയുടെ കൂഴൽപ്പണം പിടികൂടി അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശികളായ രണ്ടുപേരും ഇതര സംസ്ഥാനക്കാരായ മൂന്നുപേരുമാണ് പിടിയിലായത് കോഴിക്കോട് കെ

സി ബസ് ടെർമിനലിൽ ബസ് പിറ കോട്ട് എടുക്കാൻ നിർദ്ദേശം നൽകുന്നതിനിടെ ബസിടിച്ച് സുരക്ഷാ ജീവ നക്കാരൻ മരിച്ചു

ഇന്നലെ രാത്രി എട്ടോടെയാണ് അപകടം മംഗലാപുരം തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അടു ത്തമാസം ആറുവരെ കൊച്ചുവേളിയിൽനിന്നാകും സർവീസ് നടത്തുക യെന്ന് റെയിൽവേ അറിയിച്ചു

ജീവനക്കാരുടെ കാര്യത്തിൽ നടപടി യുണ്ടാകാത്ത പക്ഷം നിയമ നടപടിക്കൊപ്പം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യോഗം അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് സർവ കലാശാലയിൽ നടന്ന ത്രിദിന സംസ്ഥാന മോട്ടിവേഷൻ കൃാമ്പ് സമാ പിച്ചു കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽനിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കുടുംബശ്രീ സംരംഭകർക്ക് സ്ഥിരവിപണി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റ് ്ആവിഷ്കരിച്ച കുടുംബശ്രീ ബസാർ നാളെ വയനാട് കണിയാമ്പറ്റയിൽ പ്രവർത്തനം തുടങ്ങും കണി യാമ്പറ്റ പഞ്ചായത്തിലെ കമ്പളക്കാട് വിപ്ണന കേന്ദ്രത്തിൽ ആരംഭി ക്കുന്ന ബസാർ മന്ത്രി ഇ ചന്ദ്രശേഖർൻ ഉദ്ഘാടനം ചെയ്യും